പ്രതിനിധികളുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ

കിഫ്ബിയെന്ന് മുഖ്യമന്ത്രി

സായിഖോം മീരാഭായി ചാനുവിന് സ്വർണ്ണം

ഇതിനായുള്ള പ്രത്യേക സമിതിയാണ് യോഗം ചേരുന്നത്

പരസ്പര താൽപര്യമുള്ള ഉഭയകക്ഷി അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും അതിർത്തി നിർണയം അതിർത്തി പരിപാലനം എന്നിവ ഉൾപ്പെടെ നിരവധി ഉഭയകക്ഷി വിഷയങ്ങളും രാജ്യാന്തര വിഷയങ്ങളും ചർച്ച ൂചയ്യുമെന്ന് ചൈനീസ് വിദേശ മന്ത്രാലയ വക്താവ് ജംഗ്ഷുവാങ് ബീജിംഗിൽ പ്പുറുഞ്ഞു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇന്ത്യന്റെ പ്പതിനിധി സംഘത്തിന് നേതൃത്വം നൽകുന്നത്

പ്രധാനമന്ത്രി ന്ളര്ട്രേന്ട്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങും തമ്മിൽ ഒക്ടോബറ്റിൽ മ്യൂമല്ലപുരത്ത് നടത്തിയ അനൌപചാരിക ഉച്ചകോടിക്ക് ശ്രേഷ്മുള്ള് ആദ്യ പ്രതിനിധിതല ചർച്ചയാണിത്

അതിർത്തി പ്രശ്നത്തിന് പരിഹാരം കാണുന്നതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മറ്റ് അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഉന്നതതല വേദി കൂടിയാണ് പ്രത്യേക പ്രതിനിധിതല ചർച്ചകൾ

ഇത് ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്ക് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം അന്തിമരൂപം നൽകി യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം ഉറപ്പാക്കാനായി ഒട്ടേറെ നടപടികളാണ് മന്ത്രാലയം സ്വീകരിച്ചുവരുന്നത് സ്കിൽഡ് ഇന്ത്യ സാക്ഷാത്കരിക്കാനായി രാജ്യമെമ്പാടും ഉന്നത നിലവാരം പുലർത്തുന്ന നൈപുണ്യ പരിശീലനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം

തെളിവിന്റെ അഭാവത്തിൽ മൂന്നാം പ്രതി സസ്സദുർ റഹ്മാനെ കോടതി വെറുതെ വിട്ടു നാലാം പ്രതി ഖാലിദ് മുജാഹിദ് വിചാരണയ്ക്കിടെ ജയിലിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞിരുന്നു ലഖ്നൌ വാരാണസി അയോധ്യ എന്നീ സിവിൽ കോടതികളിൽ നടന്ന സ്ഫോടനങ്ങളിൽ ഒരു അഭിഭാഷകൻ ഉൾപ്പെടെ നാലുപേരാണ് കൊല്ലപ്പെട്ടത്

സംസ്ഥാനത്തെ സ്പ്പ്ദ്ഘടന ശക്തിപ്പെടുത്താനും തൊഴിൽ സാധ്യത വർധിപ്പിക്കാനും ഇതു പ്പൂഴിര്യതളിച്ചിട്ടുണ്ട് ഭരണമാറ്റത്തെ തുടർന്ന് കഴിഞ്ഞ രണ്ടു മാസങ്ങളിലായ്പി സ്ക്കാര്യ നിക്ഷേപം വർധിച്ചു ന്യൂഡൽഹിയിൽ വ്യാപാരക് സ്ക്ബന്ധിച്ച വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ആദ്ദേഹം കശ്മീർ യൂണിവേഴ്സിറ്റി എൻഐടി ഐഎം ഐഐടി എന്നിവിടങ്ങളിൽ കാമ്പസ് റിക്രൂട്ട്മെന്റ് ഉടൻ നടത്തുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

പൌരത്വ നിയമ ഭേദഗതിയെപ്പറ്റി മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ പരാമർശം വസ്തുതാപരമായി ശരിയല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മൂന്നു രാജ്യങ്ങളിൽ മതപരമായ പീഡനത്തിനിരയായവർക്ക് സ്വാഭാവിക രീതിയിൽ പൌരത്വം ലഭ്യമാക്കാനാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നത് നിയമം നിലവിലെ ഒരു ഇന്ത്യൻ പൌരനെയും ഒരു രീതിയിലും ബാധിക്കില്ലെന്നും ആരെയും പൌരത്വത്തിൽ നിന്ന് ഒഴിവാക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി

പ്രതിഷേധക്കാരുടെ കല്ലേറിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു

ഇതോടൊപ്പം അന്താരാഷ്ട്ര നാണീയുനിധിയിലെ ഇന്ത്യയുടെ കരുതൽ നിരക്കിലും വർദ്ധനവുണ്ടായി

തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളിലെ പുരോഗതിയിൽ മൂന്നു രാജ്യങ്ങളും സംതൃപ്തി പ്രകടിപ്പിച്ചതായി വിദേശകാരൃമന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

ഇതുവരെ അഞ്ച് ലക്ഷത്തിലധികം ചരക്കുകൾ തുറമുഖം വിജയകരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഛബഹർ തുറമുഖം വഴി അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചരക്കു കയറ്റുമതി ആരംഭിച്ചിരുന്നു കരാറിന്റെ പരിധിയിൽ മർമഗോവ ന്യൂ മാംഗളോർ എന്നീ തുറമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു

ഗതാഗത കസ്റ്റംസ് കാര്യങ്ങളിലെ നടപടി ക്രമങ്ങൾക്ക് അന്തിമരൂപം നൽകാനും യോഗം തീരുമാനിച്ചു കമ്മിറ്റിയുടെ മൂന്നാമത് യോഗം അടുത്ത വർഷം ആദ്യ പകുതിയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേരള നിർമ്മിതി പ്രദർശനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഞ്ചു കൊല്ലം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്

ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള കർശനമായ നടപടികൾ കിഫ്ബി നടപ്പാക്കുന്നുണ്ട്

സി പി കേരള സംസ്ഥാന പ്രിസിഡന്റ് തോമസ് ചാണ്ടി എം

തുടർന്ന് ആലപ്പുഴ ടൌൺ ഹ്റ്റളിൽ പൊതുദർശനത്തിന് വയ്ക്കും ചൊവ്വാഴ്ച ചേന്നംകരി സെന്റ് പോൾസ് മാർത്തോമ്മ പള്ളിയിലെ കുടുംബകല്ലറയിൽ ഭൌതിക ദേഹം സംസ്കരിക്കും ഇന്നലെയാണ് തോമസ് ചാണ്ടി കൊച്ചിയിൽ അന്തരിച്ചത്

ഗുരുഗ്രാമിലെ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം

ജി

സി പ്രസിഡന്റായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഭൌതിക ദേഹം ലുധിയാനയിൽ ഇന്ന് സംസ്ക്കരിക്കും

ജമ്മു കശ്മീരിലും ഹിമാചൽ പ്രദേശിലും കനത്ത മഞ്ഞുവീഴ്ചയാണ് അനുഭവപ്പെടുന്നത്

സ്വദേശത്തെയും വിദേശത്തെയും വ്യത്യസ്തങ്ങളായ പതിനായിട്ടിത്തിലധികം പൂക്കൾ ചേരുന്ന കാഴ്ചയാണ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു കാർഷിക പ്രദർശനമേള ഔഷധ സസ്യപ്രദർശം ഉൽപ്പന്ന വിപണനമേള പാരമ്പര്യ പ്രകൃതി ചികിത്സാ ക്യാമ്പ് ഗോത്ര ഭക്ഷ്യമേള എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് മേള വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് മേഖലയാണ് ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രം